പ്രതിരോധസേനയുടെ ആധുനികവല്കരണത്തിന് മുഖ്യപരിഗണന യെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര മന്ത്രിയുമായ എസ് ജയ്പാൽ റെഡ്സി അന്തരിച്ചു

നാല് പതിറ്റാണ്ടിന് ശേഷം ഛണ്ഡീഗഢിന് ബിസിസിഐ യുടെ അഫിലിയേഷൻ

പ്രതിരോധ സാമഗ്രികളുടെ ആഭ്യന്തര നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും പ്രതിരോധ സേനകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിച്ച് വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിൽ വിജയ് ദിവസിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

സ്ഥകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തോടെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം ഊർജ്ജിതപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സൈനികരുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു കാർഗിലിൽ പാകിസ്ഥാന്റെ ഗൂഢശ്രമങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

കാർഗിൽ വിജയം ഗവൺമെന്റുകളുടെ വിജയമല്ല എല്ലാ ജനങ്ങളുടെ വിജയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദവും നിഴൽ യുദ്ധങ്ങളും രാജ്യത്തിന് മാത്രമല്ല ലോകത്തിനാ കമാനം ഭീഷണിയാണ് മനുഷത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സൈന്യത്തോടൊപ്പം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സുരക്ഷിതമായ രാജ്യത്ത് മാത്രമേ വികസനം ഉറപ്പുവരുത്താനാകുക യുള്ളൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റശേഷമുള്ള രണ്ടാമത്തെ മൻകി ബാത്ത് പരിപാടിയാണിത്

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പ്രക്ഷേപണം ഉണ്ടാകും

പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രക്ഷേപണ മന്ത്രാലയം ആകാശവാണി ആകാശവാണി വെബ്സൈറ്റ് ദൂരദർശൻ യു ടൂബ് ചാനലുകൾ എന്നിവയിലും പരിപാടി കേൾക്കാം

ഇന്ന് ഉച്ചയ്ക്ക് രാഷ്ട്രപതി ബെനിനിച്ചെ കോട്ടോണുവിൽ എത്തിച്ചേരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിജയ് താക്കൂർ സിങ് പറഞ്ഞു തിങ്കളാഴ്ച രാഷ്ട്രപതി പ്രസിഡന്റ് പാട്രിസ് ടാലണുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് അദ്ദേഹം പോർട്ടോ നോവയിൽ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും കോട്ടോണുവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യൻ സമൂഹത്തെ കാണും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 ഗുനിയൻ പ്രസിഡന്റുമായി ഉന്നതതല ചർച്ച നടത്തും

ഈ ആഴ്ച ആദ്യം ബില്ല് പാർലമെന്റ് പാസാക്കിയിരുന്നു

ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും അധ്യക്ഷന്മാരുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമായി കുറയ്ക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ

മഴവെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ജൽ ശക്തി അഭി്യാനിന്റ ഉദ്ഘാടന ചടങ്ങിനിടെ ഇന്നലെ റാഞ്ചിയിൽ സംസാരിക്കുകയായിരുന്നു്

ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുള്ള ദേശീയ ദൌതൃത്തിൽ എക്സ്ടുവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷേഖാവത്ത് ആവശ്യ്പ്പെട്ടു

കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങൾ കർഷകരെ വലിയ തോതിൽ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഭൌമ ശാസ്ത്ര മന്ത്രാലയത്തിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെയ്പാൽ റെഡ്സി അന്തരിച്ചു

പുലർച്ചെ ഹൈദരാബാദിലെ സ്വകാരൃ ആശുപത്രിയിലായിരുന്നു അന്തൃം കഴിഞ്ഞ കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു തെലങ്കാനയിലെ നൽഗോണ്ടയിൽ ജനിച്ച ജെയ്പാൽ റെഡ്നി വിദ്യാർത്ഥി രാഷ്ട്രീയത്തി ലൂടെയാണ് സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് കടന്നത് നാല് തവണ എം

എയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ആദ്യകാലത്ത് കോൺഗ്രസ് അംഗമായിരുന്നു

അഞ്ച് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു

മന്ത്രിസഭയിലും ഒന്നാം രണ്ടാം യുപിഎ ഗവൺമെന്റുകളിലും മന്ത്രിസഭാംഗമായിരുന്നു വാർത്താവിതരണം പെട്രോളിയം ശാസ്ത്ര സാങ്കേതികം നഗരവികസനം തുടങ്ങിയ വകുപ്പുകളിലെ ചുമതല വഹിച്ചു

കെട്ടിടങ്ങളിലും വീടുകളിലും നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്

മുംബൈ നഗരത്തിലെ ജൂഹുതാര റോഡ് ജോഗേശ്വരി വിഖ്രോളി ലിങ്ക് റോഡ് എസ് വി റോഡ് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ എന്നീ റോഡുകളും വെള്ളത്തിനടിലായി ലോക്കൽ ട്രെയിനുകൾ നിർത്തിവച്ചു

മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിലെ വിമാന സർവ്വീസുകൾ നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനസ്ഥാപിച്ചു

മൺസൂണിന് പുറമെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണം കൊങ്കൺ ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ മറ്റ് മേഖലകളിലും മഴ തുടരുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി സി

അംഗത്വം ലഭിച്ചതോടെ ബി സി സി